ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് പുറമേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണ്ണാടക ഗവർണർ വാജുഭായ് വാല മുഖ്യമന്ത്രി വി

കണ്ണൂർ ജില്ലയിൽ ഗെയിലിന്റെ കൂടാളിയിലെ സേഫ്റ്റി വാൾവ് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകം പൈപ്പുകൾ സ്ഥാപിച്ചായിരിക്കും വിതരണം

ശ്രീരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പൻ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിദേശത്തേക്ക് അനധികൃതമായി ഡോളർ കടത്തിയ കേസിലാണ് കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്യലിനായി ഇന്ന് രാവിലെ പത്തിന് ഹാജരാകണമെന്നാണ് കെ